എസ് എൽ ഫൂട്ബോളിൽ ഇന്ന് ഒഡിഷ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

വോയിസ് ശബരിമല മണ്ഡലപൂജക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയുമായി രഥഘോഷയാത്ര ആറൻമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു രാല്പിലെ ഏഴ് മണിക്കാണ് ഘോഷയാത്ര തുടങ്ങിയത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഘോഷയാത്ര നടത്തുന്നത്